ഇനി നാല് ദിനം കൂടി

ങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസൃങ്ങൾ നൽകുന്ന ത് തെരെഞ്ഞെടുപ്പ് ക്ടമ്മീഷൻ നിരോധിച്ചു

മാൽദീവ്സ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭൂരിപക്ഷമെന്ന് പ്രാഥമിക ഫലങ്ങൾ

രായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് ജയം ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരു ഡൽഹി ക്യാപിറ്റൽസി നെയും രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ്റൈഡേഴ്സിനെയും നേരിടും

കൂടുതൽ വിവരങ്ങളുമായി അനിൽകുമാർ

ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രപദ്ദേശ് മേഘാലയ മിസോറം നാഗാലാന്റ് സിക്കിം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ലക്ഷദ്വീപ് ് തെലങ്കാന ് ഉത്തൂർാഖണ്ഡ് എന്നിവ ആദ്യ ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കൂന്ന് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി് നരേന്ദ്രിമ്മോദ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് വീണ്ടും പ്രചരണത്തിനെത്തും ത്രിപുരയിലെ ഉദയ്പൂരിലും മണിപ്പൂരിലും തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം പങ്കെടുക്കും

ജെ പി അധ്യക്ഷൻ അമിത് ഷാ പുതിയ ഒഡീഷയിലേക്കായുള്ള പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്ന സങ്കൽപ് പത്ര ഇന്ന് രാവിലെ ഭുവനേശ്വറിൽ പ്രസിദ്ധീകരിക്കും പിന്നീട് ബൽഗാവോണിലും മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിലും ചന്ദ്രാപൂരിലും നടക്കുന്ന പൊതുറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി സഹറാൻപൂർ ഷാംലി ബിജിനോർ എന്നിവിടങ്ങളിലെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ഉത്തർപ്രദേശിലെ സഹറാൻപൂർ ജില്ലയിൽ നടക്കുന്ന പാർട്ടി റാലിയിൽ പങ്കെടുക്കും ഇന്നലെ ഛത്തീ്സ്ഗഡിലും ഒഡീഷയിലും മഹാരാഷ്ട്രയിലും നടന്ന റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു

അതേസമയം ദാരിദ്ര്യത്തിനെതിരായ സർജിക്കൽ സ്ട്രൈക്കാണ് തന്റെ പാർട്ടിയുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു

ബഹുസരായ് മണ്ഡലത്തിൽ മുതിർന്ന ബി

പി നേതാവൂം കേന്ദ്രമന്ത്രിയുമായ ഗിരിരാജ് സിംഗ് പത്രിക നൽകി നാലാംഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാനദിവസം മറ്റന്നാൾ ആണ്

ജെ പി നേതാവും ഉത്തർപ്രിദേശ് മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് തെലങ്കാനയിൽ ഇന്ന് തെരെഞ്ഞെടുപ്പ് റാലികളെ അഭി സംബോധന ചെയ്യുംപെഡാപ്പള്ളി യെല്ലാ റെഡി മണ്ഡല ങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൊതു യോഗങ്ങളിൽ സംബന്ധിക്കുന്ന അദ്ദേഹം തുടർന്ന് അന്ന്പൂർ ശ്രീകാളഹസ്തി എന്നിവിടങ്ങളി ലേയും ബി ജെ

തെരെഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും

അല്ലെങ്കിൽ പരസ്യം നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി തേടിയിരിക്കണം അത്തരം പരസൃങ്ങൾ മുഴുവൻ ഇലക്ഷൻ പ്രക്രിയയെയും വികലമാക്കുമെന്ന് കമ്മീഷൻ അഭിപ്രായപ്പെട്ടു മാത്രമല്ല ഇങ്ങനെ പരസ്യം നൽകുന്നതു വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കോ പാർട്ടികൾക്കോ വിശദീകരണത്തിനുള്ള ് അവസരവും ലഭിക്കില്ല പരസ്യങ്ങൾക്ക് മുൻകൂർ അനുമതി മാധ്യമ സർട്ടിഫിക്കേഷൻ എന്നിവ അനുവദിക്കുന്ന സംസ്ഥാന ജില്ലാ തലങ്ങളിലുള്ള നിരീക്ഷണസമിതികളുടെ ശ്രദ്ധയിൽ ഉടൻ തന്നെ ഇത് കൊണ്ടുവരണമെന്നും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയപാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും അച്ചുടിമാധ്യമങ്ങൾക്കും നിർദ്ദേശങ്ങൾ നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി

ഈ ബൂത്തുകളിൽ സുരക്ഷാ ചുമതലകൾ ഉൾപ്പെടെയുള്ള തെരെഞ്ഞെടുപ്പ് ജോലി കൾ വനിതകളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും

ഇടതുപക്ഷ തീവ്രവാദ പ്രശ്നമുള്ള ബൂത്തുകളിൽ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ ബൂത്തുകൾ ഉൾപ്പെടുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു

വി അനുപമ നോട്ടീസ് നൽകി മാതൃകാ പെരുമാറ്റച്ചട്ടമനുസരിച്ച് ജാതിയുടെയും സാമുദായിക വികാരങ്ങളുടെയും പേരിൽ വോട്ട് ചോദിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിിം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദേശങ്ങൾക്ക് പൂർ വിരുദ്ധമായി വോട്ടു ചോദിച്ചതിനാണ് നടപടി

പി മാലെദ്വീപിൽ നടന്ന പാർലമെന്ററി ത്തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി

തലസ്ഥാനത്ത് ഭരണമുന്നണിയിലെ പ്രസിഡന്റും മന്ത്രിമാരും പങ്കെടുത്ത വന് ആഘോഷം ഇതോടനുബന്ധിച്ച് ഇന്നലെ നടക്കുകയുണ്ടായി ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ എം

വഡോദരയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ

ഇമാം സാഹിബ് മേഖലയിൽ തെരച്ചിൽ നടത്തുകയായിരുന്ന സുരക്ഷാസേനയ്ക്ക് നേരെ ഭീകരർ നിറയൊഴിക്കുകയായിരുന്നു

ഇവരിൽ നിന്ന് ആയുധങ്ങളും സ്ഫോടകവസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട്

ബി ഐ ഡൽഹി ചണ്ഡീഗഡ് കൊൽക്കത്ത ഒഡീഷ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങ ളിൽ പരിശോധന നടത്തി ഭൂഷൺ പവർ ആന്റ് സ്റ്റീൽ ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടർമാർ പ്രോമോട്ടർമാർ എന്നിവരുടെ ഓഫീസുകളിലും വസതികളിലുമാണ് സി ബി ഐ

ഭൂഷൻ കമ്പനിയടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപ വ്യാജ കമ്പിനികളിലേക്ക് മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത്

ഇന്ന് വൈകിട്ട് ബംഗ്ളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ളൂരു ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും രാത്രി എട്ടിന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഏറ്റുമുട്ടും

മൂന്നാം മൃത്സരം തിങ്കളാഴ്ച നടക്കും